കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിനെ രാജ്യത്തെ ആദൃ സംയുക്ത സേനാ മേധാവിയായി നിയമിച്ചു

പൌരത്വ ഭേദഗതി നിയമം ആരുടേയൂക് പ്രൌരിത്വം എടുത്തുകളയാനല്ലെന്ന് പ്രധാനമുത്തി ന്രേന്ദ്രമോദി

കേരള നിയമസഭയുടെ പ്രിത്യേക സമ്മേളനം ഇന്ന് ചേരും

കര നാവിക വ്യോമ സേനകളുടെ ഏകോപനത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപദേശകനായാണ് സി ഡി

ജനറൽ റാവത്ത് ഇന്ന് കരസേനാ മേധാവി പദവിയിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് പുതിയ നിയമനം

ഫോർ സ്റ്റാർ പദവിയോടെയും സേനാമേധാവിയുടെ ശമ്പളത്തിനു തുല്യമായി സിഡിഎസ് നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരുന്നു

ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾക്ക് സി ഡി എസ് നേതൃത്വം വഹിക്കില്ല സേനയുട്ടിപ്പാഴ്ചെലവുകൾ ഒഴിവാക്കുന്നതിനായി നിർണ്ണായക സന്ദർഭൂങ്ങളിൽ പരിഷ്ക്കാര നടപടികൾ നിർദ്ദേശിക്കുന്നതും സംയുക്ത സേനാമേര്യാണ്ട്രിയുടെ ചുമതലയാണ്

പീഡനങ്ങൾക്കു വിധേയരായ അഭയാർത്ഥികൾക്ക് രാജ്യത്ത് പൌരത്വം നൽകുന്നതിനെ കുറിച്ചാണ് നിയമം അനുശാസിക്കുന്നതെന്നും മറിച്ച് ആരുടേയും പൌരത്വം കവർന്നെടുക്കുന്നതിനെക്കുറിച്ചല്ലെന്നും ടിറ്റർ സന്ദേശത്തിൽ ശ്രീ

പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സദ്ഗുരു വിശദമാക്കുന്ന വീഡിയോ ലിങ്കും മറ്റൊരു ട്വിറ്റർ സന്ദേശത്തിൽ ശ്രീ

വീഡിയോ നമ്മുടെ സാഹോദര്യത്തെയും സംസ്ക്കാരത്തെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പൌരത്വ നിയമത്തിന്റെ പേരിൽ ഗവൺമെന്റിനെതിരെ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും ശ്രീ

തദ്ദേശീയ ജനതയുടെ അവകാശങ്ങൾ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് ജോർഹട്ട് ജില്ലയിൽ ഒരു പരിപാടിയിൽ ശ്രീ

തന്റെ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം അസമിലെ ജനതയുടെ അവകാശങ്ങളും പരിഗണനകളും സംരക്ഷിക്കുന്നുണ്ട് തദ്ദേശീയ ജനതയുടെ ഭൂമി സംരക്ഷിക്കുന്ന നയമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഭൂമി വിൽപ്പന നടത്തുമെന്ന തരത്തിൽ ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ ഭീതി പരത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു

സ്ഥാനപതിയെ തിരിച്ചുവിളിച്ചുണ്ണ് മാധ്യമ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം

ഒരു ആശുപത്രിയിൽ ശിശുമരണം വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാല് എം പി മാരടങ്ങുന്ന അന്വേഷണ സമിതിക്ക് ബിജെപി വർക്കിങ് പ്രസിഡന്റ് ജെ

കോട്ടയിൽ നിന്നുള്ള പാർലമെന്റംഗമായ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് സംഭവത്തിൽ ആശങ്കയറിയിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടത്

എല്ലാ വിഭാഗങ്ങളുടെയും തലവൻമാരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരുമായി യോജിച്ച് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു

ലോക്സഭയിലും നിയമസഭകളിലും നിലവിലുള്ള പട്ടികജാതി പട്ടിക വർഗസംവരണം പത്ത് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനുള്ള പ്രമേയം അംഗീകരിക്കാനാണ് പ്രത്യേക സമ്മേളനം ചേരുന്നത്

റെയിൽപ്പാതകളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടപ്പാക്കുക വഴി ഒരു യാത്രികനു പോലും ജീവഹാനി സംഭവിച്ചില്ല

നിർഭയ ഫണ്ട് ഉപയോഗപ്പെടുത്തി ട്ടും റെയിൽവേ സ്റ്റേഷനുകളിൽ നിരീക്ഷണ ക്യാമറ സംവിധാന്യം ഏർപ്പെടുത്തി

റെയിൽവേയിൽ ഭീകരവാദവും തീവ്രവാദവും തടയാൻ പുതുതായി റെയിൽവേ കമാന്റോ ബറ്റാലിയനു രൂപം നൽകി

യാത്രക്കാർക്ക് ഗുണമേൻമയുള്ള ഭക്ഷണം നൽകുന്നതിന് വെബ് അധിഷ്ഠിതമായി തത്സമയ ഓർഡർ ബുക്ക് ചെയ്യാവുന്ന അടുക്കള സംവിധാനവും ഐ ആർ

സി ഈ വർഷമാണ് തുടങ്ങിയത്

ദേശീയ തലസ്ഥാനത്തു നടന്ന വ്യാപാരികളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തങ്ങളുടെ താൽപ്പര്യങ്ങൾ പരിപാലിക്കുന്നതിനായി ഡൽഹിയിൽ ബിജെപി ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പിന്തുണയ്ക്കാൻ ശ്രീ

ഡൽഹിയിൽ രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്തുമെന്ന് കേന്ദ്രമന്ത്രി ഹർദ്ദീപ് പുരിയും ബിജെപി നേതാക്കളും വ്യാപാരികൾക്ക് ഉറപ്പു നൽകി

ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം കഴിഞ്ഞ രാത്രി ഉണ്ടായി

ഐ ബാഹ്യ ബഞ്ച് മാർക്ക് അടിസ്ഥാന്റ്മാക്കിയുള്ള പലിശ നിരക്ക് കുറച്ചു

ബി

രണ്ടു ടർക്കി പൌരൻമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതിൽ അധികവും സർവകലാശാല വിദ്യാർത്ഥികളാണ് ഭീകര സംഘടനയായ അൽ ക്വയ്ദയുടെ ഉപസംഘടനയായ അൽ ഷബാബ് രാജ്യതലസ്ഥാനമായ മൊഗാദിഷുവിൽ തുടർച്ചയായി ആക്രമണം നടത്തിവരികയാണ്

അടുത്ത മാസം പത്തിനാണ് മത്സങ്ങൾ ആരംഭിക്കുക ലോൺ ബോൾ സൈക്കിളിംഗ് മത്സരങ്ങൾ ആദ്യമായാണ് ഉൾപ്പെടുത്തുന്നതെന്ന് ഖേലോ ഇന്ത്യ സിഇഒ അവിനാഷ് ജോഷി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

ദുര്യോധൻ സിങ് ഗൌരവ് സോളങ്കി നമാൻ തൻവാർ എന്നിവരും യോഗ്യതാ മൽസരത്തിൽ വിജയിച്ചു

ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഒളിമ്പിക് അസ്റ്റ്സ്ട്രിയേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗമാണ് തീരുമാനം പുനൂപ്പേരിശോധിച്ചത്